ഇന്ത്യയുടെ അത്യാധ്യുനിക വാർത്താവിനിമയ ഉപഗ്രഹം സി

എസ്

ആർ ഒ വിജയകരമായി വിക്ഷേപിച്ചു

ബംഗ്ലാദേശ് പ്രധാനമന്ത്രി ഷേഖ് ഹസീനയുമായി പ്രധാനമന്ത്രിഅന്രേന്ദ്ര മോദി ഇന്ന് നടത്തിയ വിർച്ചൽ ഉച്ചകോടിയിലാണ് തീരുമാനം

കോവിഡ് വെല്ലൂവിളിയുടെ പശ്ചാത്തലത്തിൽ കൈക്കൊള്ളേണ്ട നിലപാടുകളും ഇരുവരും ചർച്ച ചെയ്തു പ്രതിസന്ധി ഘട്ടത്തിൽ ഇരു രാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം മെച്ചപ്പെട്ടതായും വിലയിരുത്തപ്പെട്ടു

ഇന്ത്യയിൽ ഉൽപാദിപ്പിക്കുന്ന കോവിഡ് വാക്സിനുകൾ ബംഗ്ലാദേശിന് ലഭ്യമാക്കുമെന്ന് ശ്രീ മോദി ഉറപ്പ് നൽകി ചികിത്സാരംഗത്തെയും വാക്സിൻ ഉൽപാദനത്തിലെയും സഹകരണവും ഇന്ത്യ വാഗ്ദാനം ചെയ്തു മെഡിക്കൽ വിദ്യാർത്ഥികൾക്കായി ബംഗ്ല ഭാഷയിൽ കോഴ്സുകൾ നടത്തുന്നതിനെ ഇന്ത്യയെ ബംഗ്ലാദേശ് അഭിനന്ദിച്ചു ത്രിപുര ബംഗ്ലാദേശ് അതിർത്തിയിലെ ശേഷിക്കുന്ന ഭാഗത്തെ മുള്ളുവേലിനിർമാണം പൂർത്തിയാക്കാനും തീരുമാനമായി അതിർത്തിയിൽ മനുഷ്യജീവൻ പൊലിയുന്നത് പോലുള്ള സംഭവ്ങ്ങൾ ഒഴിവാക്കും ഇന്ത്യയിലെ ഹൽദിബാരിയെ ബംഗ്ലാദേശിലെ ചിലഹാട്ടിയുമായി ്ബന്ധിപ്പിക്കുന്ന റെയിൽവേ ലൈനും ഇരുവരും സംയുക്തമായി ഉദ്ഘാടിന്റ് ചെയ്തു ന്യൂസ് ഡെസ്ക് ആകാശവാണി

ഇ ഒ ഫോറതിനായുള്ള മാർഗരേഖ എന്നിവ സംബന്ധിച്ചുള്ള കരാറുകളിലാണ് ഒപ്പുവെച്ചത്

വിദേശ നിക്ഷേപം ആകർഷിക്കുന്നതിനുള്ള സർക്കാരിന്റെ വിവിധ നടപടികൾ നയരൂപീകരണം സഹായങ്ങൾ എന്നിവയ്ക്ക് പ്രാധാന്യം നൽകിക്കൊണ്ട് ബഹു മുഖവും ഊർജ്ജസ്വലമായ ബ്രാൻഡ് ഇന്ത്യ അന്താരാഷ്ട്ര ബിസിനസ് സമൂഹത്തിനുമു്ന്നിൽ കാഴ്ചവയ്ക്കാൻ ആണ് വെബ്സൈറ്റ് ലക്ഷ്യമിടുന്നതെന്ന് അദ്ദേഹം ചടങ്ങിൽ പറഞ്ഞു

എം

ശ്രീഹരിക്കോട്ടയിൽനിന്ന് പി എസ് എൽ വി

വിക്ഷേപണത്തിന്റെ നാലാം ഘട്ടത്തിൽ ഉപഗ്രഹം റോക്കറ്റിൽനിന്ന് വേർപെട്ടുവെന്നും സി എം

എസ് ആർ ഒ അറിയിച്ചു

ബോറിസ് ജോണ്സണ് അയച്ച ക്ഷ്ണക്കത്ത് ബ്രിട്ടീഷ് വിദേശകാര്യ സെക്രട്ടറി ഡൊമിനിക് റാബ് ന്യൂഡൽഹിയിൽ പ്രധാനമന്ത്രി നരേന്ദ്ര മോദിക്ക് കൈമാറി

വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറുമായും അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി

എ അധികാരത്തിലിരുന്നപ്പോൾ പോലും മന്ത്രിസഭാ തീരുമാനങ്ങൾ കീറി ചവറ്റുക്കുട്ടയിലെറിഞ്ഞ ആളാണ് ശ്രീ രാഹുൽ ഭരണഘടനാ നടപടിക്രമങ്ങളോട് അദ്ദേഹത്തിന് എത്രമാത്രം ബഹുമാനമുണ്ടെന്നാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്നും ശ്രീ പ്രകാശ് ജാവദേക്കിർ പറഞ്ഞു

സർക്കാർ മേഖലയിലെ എല്ലാ സ്ഥാപനങ്ങളിലേയും സ്വകാര്യ മേഖലയിലെ സ്ഥാപനങ്ങളിലേയും ജീവനക്കാരുടെ ജില്ലാതല രജിസ്ട്രേഷൻ പൂർത്തിയാക്കിയിട്ടുണ്ട് തിരുവനന്തപുരം ഇടുക്കി പാലക്കാട് മലപ്പുറം കണ്ണൂർ എന്നീ ജില്ലകളിലെ എല്ലാ സ്ഥാപനങ്ങളിലേയും ജീവനക്കാർ രജിസ്ട്രേഷൻ നടത്തിയിട്ടുണ്ട് ബാക്കിയുള്ള സ്ഥകാര്യ സ്ഥാപനങ്ങളിലെ എല്ലാ ആരോഗ്യ പ്രവർത്തകരും എത്രയും വേഗം രജിസ്ട്രേഷൻ പൂർത്തിയാക്കണമെന്നും മന്ത്രി വ്യക്തമാക്കി

എസ്

മുഖ്യമന്ത്രി പിണറായി വിജയന്റെ അധ്യക്ഷതയിൽ ചേർന്ന ഉന്നതതല യോഗത്തിലാണ് തീരുമാനം പത്ത് പന്ത്രണ്ട് ക്ലാസുകളിലെ പൊതുപരീക്ഷകൾക്കുള്ള ക്രമീകരണവും വിദ്യാഭ്യാസ വകുപ്പ് ഉടനെ നടത്തും പൊതുപരീക്ഷയുടെ ഭാഗമായി പ്രാക്ടിക്കൽ പരീക്ഷക്കുള്ള ക്സാസുകൾ ജനുവരി ഒന്നു മുതൽ ആരംഭിക്കും

വാക്സിന്റെ പ്രതിരോധശേഷി സംബന്ധിച്ച് ഇവർ പുറത്തു വിട്ട റിപ്പോർട്ടിലാണ് ഇക്കാര്യാ വ്യക്തമാക്കിയത് ഇന്ത്യൻ കൌൺസിൽ ഓഫ് മെഡിക്കൽ റിസർച്ചിന്റെ സഹകരണത്തോടെ ഹൈദരാബാദ് ആസ്ഥാനമായുള്ള ഭാരത് ബയോടെക് ആണ് വാക്സിൻ വികസിപ്പിക്കുന്നത് വാക്സിൻ ആളുകളിൽ ഗുരുതരമായ പ്രതികൂല ഫലങ്ങൾ ഉളവാക്കുന്നില്ലെന്നും ഇത് സ്വീകരിക്കുന്നവരുടെ രോഗ പ്രതിരോധ ശേഷി മെച്ചപ്പെടുന്നതായും റിപ്പോർട്ടിൽ പറയുന്നു

പക്കലൂം രാത്രിയുമായാണ് മത്സരം നടക്കുന്നത്

സി ഒഡിഷ എഫ്

സീസണിലെ ആദ്യ വിജയമാണ് ഒഡിഷ ഇന്ന് ലക്ഷ്യം വെയ്ക്കുന്നത്